സ്കൂൾ തുറക്കാൻ സാഹചര്യമായിട്ടില്ലെന്നും മുഖ്യമന്ത്രി

എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചു

ഡി ദത്തനേയും തെരഞ്ഞെടുത്തു

പ്രതിരോധം ആരോഗ്യം നിലനിർത്തുന്നതിലും കോവിഡിനെതിരെ ശക്തമായി പോരാടുന്നതിലും ഇത് ഊന്നൽ നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു

കോവിഡ് കേസുകളുടെ എണ്ണം വർധിക്കുന്നതിനാൽ നിരോധനാജ്ഞ കർശനമായി നടപ്പാക്കാൻ പൊലീസിന് നിർദേശം നൽകിയിട്ടുണ്ട് ജാഗ്രത പാലിക്കാത്തവർക്കെതിരെ ഇനി ഉപദേശം മാത്രമാകില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വിശദാംശങ്ങളുമായി ജഷിത കുമാരി വോയ്സ് രുമ സമൂഹത്തിൽ ജാഗ്രതക്കുറവ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായി രോഗികളുടെ എണ്ണം ദിനംപ്രതി വർധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം കാസർഗോഡ് എറണാകുളം ജില്ലകളിൽ കേസ് പെർ മില്യൺ കഴിഞ്ഞ ആഴ്ചയിൽ വർധിച്ചു

ഈ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും രോഗലക്ഷണമുള്ള ആളുകളെ പരമാവധി കണ്ടെത്താനും ഐസോലേറ്റ് ചെയ്യാനും നടപടി ത്വരിതപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വളരെ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് ജനങ്ങൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മാർക്കറ്റുകളിലും പൊതുസ്ഥലങ്ങളിലും കോവിഡ് പ്രോട്ടോക്കോൾ കൂടുതൽ കർശനമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് രോഗവ്യാപനം ദേശീയ ശരാശരിയേക്കാൾ കുറഞ്ഞ തോതിൽ നിർത്താൻ കഴിഞ്ഞൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സി എം

ന്യൂസ് ഡെസ്ക് ആകാശവാണി സംസ്ഥാനത്ത് സ്കൂൾ തുറക്കാൻ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും കോവിഡ് വ്യാപനഘട്ടം കഴിഞ്ഞ ശേഷം മാത്രമേ അതിനെക്കുറിച്ച് ആലോചിക്കൂ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

എന്നാൽ കർശന ജാഗ്രത ഫലം കണ്ടു തുടങ്ങിയാൽ മാത്രമേ സ്കൂൾ തുറക്കുന്നതടക്കം നടപടികളിലേക്ക് നീങ്ങാനാകൂ എന്നും അദ്ദേഹം പറഞ്ഞു

കോഴിക്കോട് കോർപ്പറേഷനിലെ മൂന്ന് കൌൺസിലർമാർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു

ഇത് ഉറപ്പു വരുത്താൻ ക്വിക്ക് റെസ്പോൺസ് ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു രുക കണ്ണൂർ താണയിലെ വാട്ടർ അതോറിറ്റി സബ് ഡിവിഷൻ ഓഫീസിലെ ജീവനക്കാരന് കൊവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഓഫീസ് ഇന്ന് അടച്ചിടുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യുട്ടീവ് എഞ്ചിനിയർ അറിയിച്ചു രംഭ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് കോവിഡ് സ്ഥീരികരിച്ചതിനെ തുടർന്ന് പാലക്കാട് ആർ ടി ഒ ഓഫീസ് ഇന്നുമുതൽ മൂന്നു ദിവസം അടച്ചിടുമെന്ന് റീജ്യനൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു ഒക്ടോബർ ഒന്നിന് പുതിയ വാഹനങ്ങൾ പരിശോധനയ്ക്ക് കൊണ്ടുവന്നവർ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിക്കണമെന്നും ആർ ടി

നിർദേശിച്ചു

ടി ഓഫീസിൽ രണ്ട് ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സഹാചര്യത്തിൽ ഇന്ന് ഓഫീസ് പ്രവർത്തിക്കില്ലെന്ന് ആർ ടി

രുദ രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം തുടർച്ചയായി കുറയുന്നു

ചികിത്സയിൽ കഴിയുന്നവരും രോഗമുക്തരും തമ്മിലെ അന്തരം നാൽപ്പത്തി ഏഴര ലക്ഷത്തോളമായി

ജയത്തോടെ മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തി ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ അബൂദബിയിൽ നേരിടും രംഭ ചിത്ര ശിൽപകലാ രംഗത്ത് വിലപ്പെട്ട സംഭാവനകൾ നൽകിയവർക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന രാജാ രവിവർമ പുരസ്കാരത്തിന് പാരീസ് വിശ്വനാഥൻ ബി

മൂന്ന് ലക്ഷം രൂപയും ശിൽപവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം

ഡി ദത്തനാണ് രെ സാമ്പത്തിക നേരിടുമ്പോഴും വികസനപ്രവർത്തനങ്ങൾക്ക് മുടക്കം വരുത്തിയിട്ടില്ലെന്ന് മന്ത്രി ഡോ

കോഴിക്കോട് കുന്ദമംഗലത്ത് പുതുതായി അനുവദിച്ച സബ് ട്രഷറി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി

പൊതുമരാമത്ത് വകുപ്പ് അഞ്ച് കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ വളയം കുറുവന്തേരി പാറക്കടവ് റോഡിന്റെ രണ്ടാംഘട്ട പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി രുക ഇടുക്കി ഉടുമ്പൻചോല നിയോജകമണ്ഡലങ്ങളിലെ പുതകിൽ വട്ടപ്പാറ പട്ടികജാതി കോളനികളിലെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി എ

കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാത്ത ചലനാത്മകമായ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു രംഭ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ജീവനക്കാരുടെ സസ്പെൻഷൻ പിൻവലിച്ചു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിയ്ക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി രുര പൊതു വിദ്യാഭ്യാസ വകുപ്പിൽ വി എച്ച്

ഇ വിഭാഗത്തിൽ കരിയർ മാസ്റ്റർമാർക്കായി നടന്ന കൌൺസിലിംഗ് വെബിനാർ റിസോഴ്സ് പേഴ്സണായി പങ്കെടുത്ത വ്യക്തി പോക്സോ കേസിൽ പ്രതിയാണെന്ന വിവരം വകുപ്പിന് അറിയില്ലായിരുന്നുവെന്ന് പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പൊതു വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോ

പ്രകാശിനെ ചുമതലപ്പെടുത്തിയതായും റിസോഴ്സ് പേഴ്സണെ തെരഞ്ഞെടുക്കുന്നതിന് വകുപ്പ് തലത്തിൽ മാർഗ്ഗ നിർദ്ദേശം തയ്യാറാക്കുമെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പറഞ്ഞു

ഐ മെഡിക്കൽ കോളേജുകളിൽ തൊഴിലാളികളുടെ മക്കൾക്ക് സംവരണം പുനസ്ഥാപിക്കുന്നതിന് ഇ

ഐ കോർപ്പറേഷൻ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് കുമാർ ഗാംഗ്വാർ ഇ

ഐ ഡയറക്ടർ ജനറൽ അനുരാധാ പ്രസാദ് എന്നിവർ ഉറപ്പു നൽകിയതായി എൻ

ഇന്ന് കേരള ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന വിദ്യാർത്ഥികൾ സമർപ്പിച്ച റിട്ട് ഹർജിയിലും മദ്രാസ് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച വിചാരണയ്ക്ക് വരുന്ന റിട്ട് അപ്പീൽ ഹർജിയിലും തൊഴിലാളികളുടെ മക്കൾക്ക് സംവരണം ലഭ്യമാകാനുതകുന്ന നിയമനടപടി സ്വീകരിക്കുമെന്ന് അവർ അറിയിച്ചതായും പ്രേമചന്ദ്രൻ കൊല്ലത്ത് പറഞ്ഞു രേര ട്രയിൻ പുറപ്പെടുന്നതിന് അര മണിക്കൂർ മുൻപു വരെ ടിക്കറ്റ് റിസർവ് ചെയ്യാവുന്ന സംവിധാനം ശനിയാഴ്ച പുനരാരംഭിക്കും

കോവിഡ് വ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ടിക്കറ്റ് റിസർവേഷൻ രണ്ടു മണിക്കൂർ മുൻപു വരെയാക്കി പുനക്രമീകരിച്ചിരുന്നു രംഭ കരിപ്പൂർ വിമാനത്താവളത്തിൽ രണ്ട് കിലോയിലധികം സ്വർണവുമായി രണ്ടു പേർ പിടിയിലായി ഷാർജയിൽ നിന്നെത്തിയ കോഴിക്കോട് സ്വദേശി മുഹമ്മദ് അസീബ് കണ്ണൂർ പെരിങ്ങളം സ്വദേശി ജസീല എന്നിവരാണ് കസ്റ്റംസിന്റെ പിടിയിലായത് രംഭ ബധിര വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ ആംഗ്യഭാഷയിൽ ലഭ്യമാക്കുന്നതിന് ഇന്ത്യൻ ആംഗ്യഭാഷാ ഗവേഷണപരിശീലന ധാരണാപത്രം ഒപ്പിട്ടു

ടിയും ഓൺലൈനായി നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ താവർചന്ദ് ഗെലോട്ടിന്റേയും രമേശ് പൊക്രിയാൽ നിശാങ്കിന്റേയും സാന്നിധ്യത്തിലാണ് ധാരണാ പത്രം ഒപ്പു വെച്ചത് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കും ആംഗ്യഭാഷയിൽ എൻസിആർടി പാഠപുസ്തകങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ ഇതു വഴി കഴിയുമെന്ന് താവർചന്ദ് ഗെലോട്ട് പറഞ്ഞു ദരര സംസ്ഥാനത്ത് പോളിടെക്നിക്ക് പ്രവേശനനടപടികൾ നാളെ ആരംഭിക്കും

രുമ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാപരിഷത്ത് കോഴിക്കോട് ജില്ല മുൻ പ്രസിഡന്റ് റിട്ട ക്യാപ്റ്റൻ ചോലക്കര കളത്തിങ്ങൽ നാരായണൻകുട്ടി നായർ പുതുക്കോട് നിര്യാതനായി

സംസ്കാരം ഇന്ന് രാവിലെ വീട്ടുവളപ്പിൽ നടക്കും